തിരുവനന്തപുരം തമ്പാനൂർ റെയ്യിൽവേ സ്റ്റേഷനിലും എറണാകുളം സൌത്ത് സ്റ്റേഷ്ട്രില്ലും കോഴിക്കോട് സ്റ്റേഷനിലും പ്രത്യേക സൌക്ടര്യങ്ങൾ ഒരുക്കി

എന്നാൽ വിൽപ്പനശ്ാല്കൾ തുറക്കുന്ന തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നും പൂ എല്ലാ വിൽപ്പന ശാലകളും ഒന്നിച്ചു തുറക്കാനാണ് ആലോച്ചിക്കുന്നതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കൌണ്ടർ സജ്ജീകരണവും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാൽ മാത്രമേ തീയതി നിശ്ചയിക്കാൻ കഴിയുകയുള്ളൂ

പാലക്കാട് നിന്ന് മറ്റ് ജില്ലകളിലേയ്ക്ക് കള്ള് എത്തിക്കാൻ പെർമിറ്റ് നൽകിയിട്ടുണ്ട്

അബ്കാരി നിയമത്തിൽ മാറ്റം വരുത്തി അഴിമതിക്ക് വഴിയൊരുക്കുന്നതായും അദ്ദേഹം പറഞ്ഞു